സമാധനത്തിനുമാണ് കേന്ദ്രഗവൺമെന്റ് പ്രാധാന്യം നൽകുന്നതെന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ്

വെള്ളി

ജെ

പ്രസിഡന്റായി എം

കേന്ദ്രഗവൺമെന്റ് ആറ് സംസ്ഥാനങ്ങളുമായി കരാർ ഒപ്പുവച്ചു

വനിതകളുടെ അമ്പെയ്ത്ത് കോമ്പൌണ്ട് മുൽസരത്തിലാണ് വെള്ളി ലഭിച്ചത് ബാഡ്മിന്റൺ വനിതാ ഫ്ലൈന്റ്ലിൽ ഇന്ത്യയുടെ സുവർണ്ണ പ്രതീക്ഷയായ പി വി സിന്ധു ഇപ്പോൾ ചൈനീസ് തായ്പെയ് താരത്തോട് മൽസരിക്കുകയാണ്

കൂടുതൽ വിവരങ്ങളുമായി ലിൻസ

പുരുഷ ഹോക്കിയിൽ പൂൾ എ

ടേബിൾ ടെന്നീസിൽ പുരുഷ വിഭാഗത്തിൽ ഇന്ത്യ മെഡൽ ഉറപ്പിച്ചു ഇന്ന് നടക്കുന്ന സെമിഫൈനലിൽ ദക്ഷിണകൊറിയയാണ് ഇന്ത്യയുടെ എതിരാളികൾ ഗെയിംസിന്റെ ചരിത്രത്തിലാദ്യമായാണ് ടേബിൾ ടെന്നീസിൽ ഇന്ത്യ മെഡൽ നേടുന്നത്

ജെ

ഭരിക്കുന്ന സംസ്ഥാനങ്ങ്ളിലെ മുഖ്യമന്ത്രിമാരുടെ യോഗത്തിന് ന്യൂഡൽഹിയിൽ ഇന്ന് തുടക്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ബി ജെ

ജെ

ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ക്ഷേമപ്രവർത്തനങ്ങളെക്കുറിച്ചുളള അവലോകനം യോഗത്തിൽ ഉണ്ടാകുമെന്ന് കരുതുന്നു ലോക്സഭയയിലേക്കും മൂന്ന് സംസ്ഥാന നിയമസഭകളിലേക്കും അടുത്തുതന്നെ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഈ യോഗത്തിന് ഏറെ പ്രാധാന്യമുണ്ട്

അധ്യക്ഷനായി എം

സ്റ്റാലിനെ തെരഞ്ഞെടുത്തു ചെന്നൈയിൽ ഇന്ന് ചേർന്ന ജനറൽ കൌൺസിൽ യോഗമാണ് ഇത് സംബന്ധിച്ച തീരുമാനം എടുത്തത് വൈകിട്ട് സ്റ്റാലിൻ ചുമതലയേൽക്കും ദൊരൈമൂരുകനെ ട്രഷററായും തെരഞ്ഞെടുത്തു

യമുനാ നദി കടന്നു പോകുന്ന ഉത്തരഖണ്ഡ് ഹിമാചൽ പ്രദേശ് രാജസ്ഥാൻ ഹരിയാന ഡൽഹി ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളാണ് ഡാം നിർമ്മാണവുമായി സഹകരിക്കുന്നത്

താരിഖ് കസ്മി മുഹമ്മദ്ധ് അക്തർ എന്നിവർക്കെതിരെയാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും ബിംസ്റ്റെക്ക് അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണ പുരോഗതിയും ഭാവി സാധ്യതകളും ഉച്ചകോടി വിലയിരുത്തും

കേന്ദ്ര വ്യോമയാന വകുപ്പ്മന്ത്രി സുരേഷ് പ്രഭുവാണ് ഇക്കാരൃം മാധ്യമങ്ങളെ ഡൽഹിയിൽ അറിയിച്ചത് ഡിസംബർ ഒന്ന് മുതൽ നിയന്ത്രണങ്ങൾ നിലവിൽ വരും

മറ്റ് വിമാനങ്ങൾ പറക്കുന്ന റെഡ്സോൺ മേഖലയിൽ ഡ്രോണുകൾ അനുവദിക്കില്ല

നാനോ ഡ്രോണുകൾക്കും രണ്ടു കിലോവരെയുള്ള മൈക്രോ ഡോണുകൾക്കും റജിസ്ട്രേഷൻ ആവശ്യമില്ല എന്നാൽ അതിന്റും മുകളിൽ ഭാരമുള്ള എല്ലാ ഡ്രോണുകളും റജിസ്റ്റർ ചെയ്തു യുണിക്ട് ഐഡന്റിഫിക്കേഷൻ നമ്പർ കരസ്ഥമാക്കണം രണ്ടു കിലോഗ്രാമിലേറെ ഭൂാരമുള്ള ഡ്രോണുകൾ പറത്തണമെങ്കിൽ ഇനി ലൈസൻസ് വേണമെന്നും നിർദ്ദേശമുണ്ട്

വിമാനത്താവളങ്ങളുടെ പരിസരം രാജ്യാന്തര അതിർത്തി ന്യൂഡൽഹി സംസ്ഥാന വിജയ് ചൌക്ക് സെക്രട്ടേറിയറ്റ്മന്ദിരങ്ങൾ സേനാ കേന്ദ്രങ്ങൾ മറ്റു സുരക്ഷാ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ഡ്രോൺ പറത്തുന്നതിന് അനുമതി നൽകില്ല

പിന്നീട് ഹെലികോപ്റ്ററിൽ ചെങ്ങന്നൂരിലേക്ക് പോയി

തുടർന്ന് ആലപ്പുഴയിലേക്കു പോയ രാഹുൽഗാന്ധി ദുരിതാശ്വാസ കേന്ദ്രത്തിൽ മൽസൃത്തൊഴിലാളികളെ അനുമോദിക്കുന്ന ചടങ്ങിലും പങ്കെടുക്കും

ആലുവയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളും ചാലക്കുടിയിലെയും ചേന്ദമംഗലത്തെയും പ്രളയബാധിതപ്രദേശങ്ങളും സന്ദർശിക്കും

തുടർച്ചയായ ബാങ്ക് അവധി ക്ടാർണമാണ് തുക കൈമാറാൻ കഴിയാത്തതെന്നും ജില്ലാ കലക്ടർമാരുമായി നടത്തിയ വീഡിയോ കോൺഫറൻസിൽ അദ്ദേഹം ആറീയിച്ചു ക്യാമ്പിലുളളവർ തിരിച്ച് എത്തുമ്പോൾ ഭക്ഷണം പാകം ചെയ്യാനുളള പാത്രമോ മറ്റ് സൌകര്യങ്ങളോ വീടുകളിലൂണ്ട്ടർകില്ല ഈ സാഹചരൃം മനസ്സിലാക്കി ഉണർന്ന് പ്രവർത്തിക്കണ്ട്മെന്നും അദ്ദേഹം കലക്ടർമാർക്ക് നിർദേശം നൽകി

ഡിജിറ്റൽ രേഖയിൽ സിബിഎസ്ഇ പരീക്ഷ കൺട്രോളറുടെ ഡിജിറ്റൽ ഒപ്പ് രേഖപ്പെടുത്തിയിരിക്കും

റ്റി ആക്ട് പ്രകാരം ഈ ഡിജിറ്റൽ രേഖ നിയമവിധേയമാണ്

കർണ്ണാടക കേരള ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലെ തീരമേഖലകളിൽ കാറ്റിന് സാധൃതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം അറിയിച്ചു

ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം തീൻ മൂർത്തീ ഭവൻ ആർട്ക് പുരം എന്നിവിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയാണ് പ്പെയ്ത്ത്

ബംഗളൂരുവിലേക്ക് കടക്കാൻ ശ്രമിക്കവേയാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് കർണ്ണാടകയിലെ ലഹരി മരുന്ന് മാഫിയയുമായി ഇയാൾക്ക് ബന്ധമുണ്ടെന്ന് ത്രിപുര പോലീസ് അറിയിച്ചു ത്രിപുരയിൽ നിന്നും ബംഗളുരുവിലും ഹൈദ്രാബാദിലും പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾ കഞ്ചാവ് കടത്തുന്നതായി വിവരം ലഭിച്ചിരുന്നതായും പോലീസ് അറിയിച്ചു

ഐക്യരാഷ്ട്ര സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സമാധാന സേനയുടെ സഹായത്തോടെയാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്

ചൈനയിൽ നിന്ന് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്കും കൊറിയൻ ഉപദ്വീപിലേക്കും പനി പടരുമെന്നാണ് പ്യൂഫ്എന്നിന്റെ ഭക്ഷ്യകാർഷിക സംഘടനയുടെ മുന്നറിയിപ്പ് ച്ചൈന്റ്യിലെ നാല് പ്രവിശ്യകളിലാണ് പനിബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്